മന്ത്രി രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല ജലീലിന്റെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടാത്തത് സംശയാസ്പദമെന്ന് കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് എ വിജയരാഘവൻ

കെ ശൈലജ വരാനിരിക്കുന്നത് പരീക്ഷണ നാളുകളെന്നും മന്ത്രി

നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് മന്ത്രിയോട് വിവരങ്ങൾ തേടിയതായി റിപ്പോർട്ടുണ്ട് രണ്ടര മണിക്കൂറോളം മന്ത്രിയെ ചോദ്യം ചെയ്തതായാണ് വിവരം രേര ധാർമ്മികത അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി കെ

ഈ സംഭവം കേരളത്തിന് നാണക്കേടാണെന്നും ചെന്നിത്തല പറഞ്ഞു രുമ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേറ്റ് മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത് സംശയാസ്പദമാണെന്ന് ബി ജെ

ലൈഫ് പദ്ധതിയിലും മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലും ജലീൽ മുഖ്യമന്ത്രിയെ സഹായിച്ചിട്ടുണ്ടോയെന്ന സംശയം ന്യായമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാദ്ധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ജലീലിന്റെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്ന് കെ

എല്ലാ അഴിമതിയുടേയും കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയാണെന്നും കെ ടി ജലീൽ ചെറിയ മത്സ്യം മാത്രമാണെന്നും മുഖ്യമന്ത്രിയാണ് വലിയ സ്രാവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

ടി ജലീലിനെ അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടിയതിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും മന്ത്രി രാജി വെക്കേണ്ട കാര്യമില്ലെന്നും എൽ ഡി

കേസന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ തേടുന്നത് ജനാധിപത്യ നടപടിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു രുമ സത്യമേ ജയിക്കൂ സത്യം മാത്രമെന്ന് മന്ത്രി കെ

ലോകം മുഴുവൻ എതിർത്താലും മറിച്ചൊന്ന് സംഭവിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സെക്രട്ടറിയേറ്റിലേക്ക് ബി

വളാഞ്ചേരി കാവുംപുറത്തെ മന്ത്രിയുടെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം

കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം ജി റോഡ് ഉപരോധിച്ചു പാലക്കാട്ട് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ സുൽത്താൻപേട്ട ജങ്ഷൻ ഉപരോധിച്ചു കോഴിക്കോട്ടും യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു

ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് ബി

പി സെക്രട്ടറിയേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പൊലീസ് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ കെ

ദേദ സംസ്ഥാനത്ത് ആകെ കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷവും പ്രതിദിന രോഗികളുടെ എണ്ണം മൂവായിരവും കടക്കുമ്പോൾ അതി ജാഗ്രത തുടരണമെന്ന് മന്ത്രി കെ

ആരിൽ നിന്നും കോവിഡ് പകരുന്ന അവസ്ഥയാണെന്നും രോഗനിരക്ക് കൂടി ആശുപത്രിയിൽ കിടക്കാൻ ഇടമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കരുതെന്നും മന്ത്രി തിരുവന്തപുരത്ത് പറഞ്ഞു ഓരോരുത്തരും ശ്രദ്ധിക്കണം എല്ലാവരും ജാഗ്രത പാലിച്ചാൽ എത്രയും വേഗം കോവിഡിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി

കഴിഞ്ഞ ഏഴു മാസക്കാലമായി കോവിഡിനെതിരായ പ്രതിരോധം സംസ്ഥാനം ശക്തമായ നിലയിൽ കൊണ്ടു പോവുകയാണ്

ത്യശൂർ പാലക്കാട് കാസർകോട് ജില്ലകളിൽ നൂറിലധികവും പത്തനംതിട്ട വയനാട് ഇടുക്കി ജില്ലകളിൽ നൂറിൽ താഴെയുമാണ് രോഗബാധ ന്യൂസ് ഡെസ്ക് ആകാശവാണി രേര തൃശൂർ അളഗപ്പനഗർ പച്ചളിപ്പുറത്ത് കൊവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു

രുമ കൊവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സക്ക് മുതിരാതെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട് രോഗസ്ഥിരീകരണം നടത്തേണ്ടതും ചികിത്സ തേടേണ്ടതുമാണെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചു

ഗുലാംനബി ആസാദ് മോത്തിലാൽ മോറ മല്ലികാർജ്ജുൻ ഖാർഗെ അംബികാ സോണി എന്നിവരെ എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി പി ചിദംബരം രൺദീപ് സുർജേവാല താരിഖ് അൻവർ ജിതേന്ദ്രസിംഗ് എന്നിവരെ സ്ഥിരം അംഗങ്ങളാക്കി

കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് മുകുൾ വാസ്നികിനെ ഒഴിവാക്കി താരിഖ് അൻവറിനാണ് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതല രുമ ആര്യ സമാജം നേതാവും സാമൂഹിക പ്രവർത്തകനുമായ സ്വാമി അഗ്നിവേശ് അന്തരിച്ചു

കരൾ രോഗത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകീട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

സാർവ്വ ദേശിക് ആര്യ പ്രതിനിധി സഭ ആര്യ സമാജ് ലോക കൌൺസിൽ എന്നിവയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്

മന്ത്രി എ കെ ബാലനും സ്പീക്കർ പി

വർഗീയതക്കും ഫാസിസത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ വ്യക്തിത്വമായിരുന്നു സ്വാമി അഗ്നിവേശ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു രുമ കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസുകളും തിരുവനന്തപുരം എറണാകുളം വേണാട് എക്സ്പ്രസും റദ്ദാക്കില്ലെന്ന് റെയിൽവെ അറിയിച്ചു സംസ്ഥാനഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെയും ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെന്നും സമയക്രമത്തിൽ മാറ്റമില്ലെന്നും അധിക്വതർ പറഞ്ഞു രുഭ കേരളത്തിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകളും സ്പെഷ്യൽ ട്രെയിനുകളും സർവീസ് നടത്താൻ റെയിൽവേക്ക് സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകണമെന്ന് കെ

സി വർക്കിങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു

കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് രുര കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻകാർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് സമയപരിധിയിൽ ഇളവു വരുത്തിയതായി കേന്ദ്ര സഹമന്ത്രി ഡോ

രുമ സംസ്ഥാനത്തെ ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്തായി കണ്ണൂർ ജില്ലയിലെ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു